അമേരിക്ക പ്രഖ്യാപിച്ചു

അസം ബീഹാർ ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തൃർഉഖണ്ഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദീപ് എന്നിപ്പിട്ങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും

അതേസമയം മൂന്നാംഘട്ടൂ ്ത്ൽഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസ്മൃതിച്ചു

കേരളം ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്

വയനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശിവസേനയുമായി ചേർന്നുള്ള ആദ്യ സംയുക്ത റാലി കൂടിയാണിത് തുടർന്ന് പ്രധാനമന്ത്രി കർണാടകയിലേക്ക് പോകും

ചിത്രദുർഗയിലാണ് ആദ്യ റാലി

ക്ലിവകിട്ട് അഞ്ച് മണിക്കാണ് മൈസൂരുവിലെ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്

വൃക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നത് പരിശോധനകളിലോ അന്വേഷണങ്ങളിലോ രാഷ്ട്രീയമായ വിവേചനം ഉണ്ടാകാറില്ലെന്ന് റവന്യൂ വകുപ്പ് വൃക്തമാക്കി അനധികൃത പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ ലഭൃമായാൽ തുടർ നടപടി കൈക്കൊള്ളാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് റവന്യൂ വകുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു

തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നതിനുശേഷമുള്ള കണക്കാണിത്

രണ്ടേമുക്കാൽ ലക്ഷത്തിലധികം ലിറ്റർ വ്യാജ മദ്യമാണ് പിടിച്ചെടുത്തത്

ഐ നിയോഗിച്ചു കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്

ഇറാബോർ പോലീസ് സ്റ്റേഷനിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുമ്പാകെയാണ് നക്സലുകൾ ആയ്ടൂധംവിച്ച് കീഴടങ്ങിയത്

ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും മുന്നു മുതൽ നാലു ഡിഗ്രിവരെ ഉയരാൻ സാധ്യതയുണ്ട് സൂര്യാഘാതം ഒഴിവാക്കാൻ ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

ബാലാകോട്ടിലെ ഭീകരവിരുദ്ധ നീക്കത്തെ തുടർന്നാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചത്

എന്നാൽ പാക് വിമാനം തകർന്നതിന്റെ ഇലക്ട്രോണിക് റഡാർ തെളിവുകൾ കൈവശമുണ്ടെന്ന് അന്നുതന്നെ വ്യോമസേന വൃക്തമാക്കിയിരുന്നു പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമ നടപടിക്കു പിന്നാലെയായിരുന്നു ഈ നീക്കങ്ങൾ ഉണ്ടായത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പശ്ചിമേഷ്യയിൽ ഭീകരർക്കെതിരായ സമ്മർദ്ദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് യു

റവല്യൂഷണറി ഗാർഡ്സുമായി ഇടപാട് നടത്തുന്ന ബാങ്കുകളും സാമ്പത്തിക സ്ഥാനപങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഹോമിയോപ്പതി സ്ഥാപകൻ ഡോ

എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബിന് ആറ് വിക്കറ്റ് ജയം ലോകേഷ് രാഹുൽ മായങ്ക് അഗർവാൾ അർദ്ധസെഞ്ചറി സഖ്യമാണ് പഞ്ചാബിനെ വിജയത്തിലെത്തിച്ചത്

ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് പി

പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് എച്ച്

മിക്സഡ് ഡബിൾസിൽ പ്രണവ് ജെറി ചോപ്ര എൻ സിക്കി റെഡ്സി എന്നിവർ നല്ല പ്രതീക്ഷയിലാണ്

റിലീസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പ്രെമോന്നത കോടതി ഇന്നലെ നിരസിച്ചിരുന്നു